രാജ്യവ്യാപകമായി കോവിഡ് പ്രതിരോധമരുന്ന് വിതരണത്തിന് തയ്യാറെടുത്ത് കേന്ദ്രസർക്കാർ

വാളയാർ പീഡന കേസിൽ പുനർവിചാരണ വേണമെന്ന് കേരള ഹൈക്കോടതി വിചാരണക്കോടതിയുടെ വിധി ഹൈക്കോടതി റദ്ദാക്കി

എൽ ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ഗോവയെ നേരിടും

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ

അന്തിമതീരുമാനം എടുക്കുന്നത് സർക്കാരാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ മാധ്യമപ്രവർത്തകരെ അറിയിച്ചു

അവിടെനിന്ന് ജില്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും അയക്കുമെന്നും ആരോഗ്യ സെക്രട്ടറി അറിയിച്ചു

വാക്സിനുകൾ വൻതോതിൽ ഇവിടെ സംഭരിക്കുകയും ആവശ്യാനുസരണം മറ്റു കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയും ചെയ്യും

നിലവിൽ രണ്ടര ലക്ഷത്തോളം പേർ മാത്രമാണ് ചികിത്സയിലുള്ളത്

ഏറ്റവും കൂടുതൽ രോഗമുക്തരുള്ളത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ്

കേരളത്തിൽ അതി തീവ്ര വൈറസിൻറെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നിരീക്ഷണം കർശനമാക്കിയതായി ആരോഗൃ വകുപ്പ് അറിയിച്ചു അടുത്തിടെ യു

അതിൽ പേരിൽ ജനിതക വകഭേദം സംഭവിച്ചു വൈറസിനെ കണ്ടെത്തിയിട്ടുണ്ട്

ബ്രസീൽ യുകെ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്

ആരോഗ്യ വിദഗ്ദ്ധർ അടങ്ങുന്ന സംഘം ഇതിനകം യാത്ര തിരിച്ചതായും എന്നാൽ ചൈനീസ് അധികൃതർ രാജ്യത്ത് പ്രവേശന അനുമതി ഇതുവരെ നൽകിയിട്ടില്ലെന്നും ഡബ്ല്യൂ എച്ച് ഒ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയാസിസ് പറഞ്ഞു കൊറോണ വൈറസിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനു ലോകാരോഗ്യസംഘടന പ്രഥമ പരിഗണനയാണ് നൽകുന്നത് എത്രയും വേഗം ഈ ദൌത്യം നിറവേറ്റുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു വിദഗ്ദ്ധ സംഘത്തിന് അനുമതി നൽകുമെന്നാണ് ചൈനീസ് ഭരണകൂടം നേരത്തെ അറിയിച്ചിരുന്നത്

വിചാരണക്കോടതിയുടെ വിധി റദ്ദാക്കിയ ഹൈക്കോടതി കുട്ടികളുടെ അമ്മയുടെയും സംസ്ഥാന സർക്കാരിന്റെയും അപ്പീൽ അംഗീകരിച്ചു

പ്രായപൂർത്തിയാകാത്ത സ്യഹോദിരിമാരെ മാസങ്ങളുടെ വ്യത്യാസത്തിൽ തൂങ്ങിമരിച്ചത്രായി കണ്ടെത്തിയതാണ് വാളയാർ കേസിന് ആധാരം

കേരളം രാജസ്ഥാൻ ഹിമാചൽപ്രദേശ് തുടങ്ങിയ ചില സംസ്ഥാനങ്ങളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നിർദ്ദേശം

പക്ഷികളിൽ അസുഖ ലക്ഷണം ഉണ്ടോയെന്ന് നിരീക്ഷിക്കാനും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്

അതിനിടെ റെയിൽവേയുടെ ചരക്ക് ന്ടീക്ക് വ്യവസായ വികസന പോർട്ടൽ കേന്ദ്രമന്ത്രി പീയുഷ് ഗ്നോയൽ രാജ്യത്തിന് സമർപ്പിച്ചു

എൽ ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ഗോവയെ നേരിടും

ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റിയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ ബംഗളുരു എഫ്

പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തുള്ള ബംഗളുരുവിന്റെ തുടർച്ചയായ മൂന്നാം തോൽവിയായിരുന്നു ഇത്

ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ചിന് സിഡ്നിയിലാണ് മത്സരം രോഹിത് ശർമ്മ ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് മെൽബണിലെ ജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് അജിൻകൃ രഹാനെയുടെ ഇന്ത്യൻ സംഘം നാളെ ഇറങ്ങുന്നത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞവർഷമാണ് ഗുജറാത്തിൽ കിസാൻ സൂര്യ യോജനയ്ക്ക് തുടക്കം കുറിച്ചത്

ആദ്യഘട്ടത്തിൽ ഒരു ലക്ഷം കർഷകരെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്

ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനും സ്ഥിരതയ്ക്കും വഴിയൊരുക്കുന്ന കരാറിലാണ് ഒപ്പു വച്ചത്

യുഎസ് സെനറ്റിൽ മേൽക്കൈ ആർക്കായിരിക്കും എന്ന് ഈ തെരഞ്ഞെടുപ്പ് വിജയം തീരുമാനിക്കും നിലവിൽ മുന്നിട്ടുനിൽക്കുന്ന റിപബ്ലിക്കൻ പാർട്ടിക്ക് വിജയിച്ചാൽ ഭൂരിപക്ഷം ലഭിക്കും എല്ലാ സെനറ്റ് ലെജിസ്ലേറ്റീവ് സമിതികളിലും ഭൂരിപക്ഷം ലഭിക്കാൻ ഇതോടെ പാർട്ടിക്ക് സാധിക്കും

അമേരിക്കയ്ക്കും കാനഡയ്ക്കും ശേഷം മോഡേണ വാക്സിന് അംഗീകാരം നൽകുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇസ്രയേൽ മോഡേണ വാക്സിന്റെ ആറ് ദശലക്ഷം ഡോസ് ഇസ്രയേൽ ആരോഗ്യമന്ത്രാലയം സ്വീകരിച്ചതായി യു എസ് ബയോടെക് കമ്പനി അറിയിച്ചു

സ്വർണ്ണ വിലയിൽ മാറ്റമില്ല